ഇതിനു പുറമെ പാതയോരങ്ങളിലെ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അത്യാവശൃ സാധനങ്ങൾ വിൽക്കുന്ന ബങ്കുകളും ലഘു ഭക്ഷണ ശാലകളും തുടങ്ങും

പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കുന്നതിന് എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച താലൂക്ക്തല അദാലത്തു കൾ സംഘടിപ്പിക്കാനും തീരുമാനമായി വിവരം പൊതുജന ങ്ങളെ മുൻകൂട്ടി അറിയിക്കും സംസ്ഥാന ആംഡ് പൊലീസ് ബറ്റാലിയനിൽ നിന്നും റൈഫിളുകളും വെടിയുണ്ടകളും കാണാതായെന്ന സി എ ജി റിപ്പോർട്ട് തെറ്റാണെന്ന് ആഭ്യന്തര സെക്രട്ടറി ബിശ്വാസ് മേത്ത മുഖ്യമന്ത്രി പിണറായി വിജയന് റിപ്പോർട്ട് നൽകി കണക്ക് സൂക്ഷിച്ച രജിസ്റ്ററിൽ പിഴവ് സംഭവിച്ചതാണെന്ന പരിശോധനാ റിപ്പോർട്ടാണ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകി യത്

കൂടാതെ ഇവയുടെ വിവരങ്ങൾ കമ്പ്യൂ ട്ടറിൽ രേഖപ്പെടുത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്

രണ്ട് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം

തോക്കും വെടിയു ണ്ടകളും കാണാതായ സംഭവത്തിൽ സി എ ജി യുടെ ചോദ്യ ങ്ങൾക്ക് സത്യസന്ധമായി മറുപടി പറയാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്ന് സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു

ഡി ജി പിയുടെ എല്ലാ വഴിവിട്ട നടപടികൾക്കും മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി

ഇന്ത്യാ അമേരിക്ക ബന്ധ ങ്ങളെ കൂടുതൽ ഉറപ്പിക്കാൻ ട്രംപിന്റെ സന്ദർശനം വഴിയൊ രുക്കും ജനാധിപത്യത്തിനും ബഹുസ്വരതയ്ക്കും ഒരേ പ്രതി ബദ്ധത പുലർത്തുന്ന രാജ്യങ്ങളാണ് ഇന്തൃയും അമേരിക്ക യുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ഇന്ത്യാ സന്ദർശനം നിലവിലെ വ്യാപാര ബന്ധങ്ങളിൽ മാറ്റം കൊണ്ടുവരുമെന്ന് യു എസ് പ്രസിഡണ്ട് ഇന്നലെ വാഷിംഗ്ടണിൽ സൂചിപ്പിച്ചിരുന്നു

ഇന്ത്യാ ചരിത്രത്തിലെ അഭിമാനത്തിന്റെയും ധീരതയു ടെയും യുദ്ധതന്ത്രത്തിന്റെയും ഏടാണ് ശിവജിയുടെ കാല ഘട്ടമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ട്വിറ്ററിൽ കുറിച്ചു ഭാരതമാതാവിന്റെ ശ്രേഷ്ഠ പുത്രനുമുന്നിൽ ആദരമർപ്പി ക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു ധീര ത സഹാനുഭൂതി സദ്ഭരണം എന്നിവയ്ക്കെല്ലാം മാതൃക യായിരുന്നു ശിവജിയുടെ കാലമെന്നും അദ്ദേഹം കുറിച്ചു ലോകത്തിന് മാതൃകയായ ഭരണാധികാരിയും മികച്ച പോരാളിയുമായിരുന്നു ശിവജിയെന്ന് പ്രകാശ് ജാവ്ദേക്കർ അനുസ്മരിച്ചു

ഇന്ന് പുലർച്ചെ ആറ് പേരെ കൂടി നാട്ടിലേക്കയച്ചിട്ടുണ്ട്

മുതിർന്ന അഭിഭാഷകരായ സഞ്ജയ് ഹെഗ്ഡെയും സാധ്ന രാമചന്ദ്രനും അടങ്ങിയ സമിതിയാണ് ചർച്ച നട ത്തുക സമരവേദി മാറ്റുന്നതും ക്രമസമാധാനം പുനഃക്രമീ കരിക്കുന്നതുമുൾപ്പെടെ കാര്യങ്ങൾ ചർച്ച ചെയ്തേക്കും

അതേസമയം മധൃസ്ഥ ചർച്ചയോട് സഹകരിക്കുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു

രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ജമ്മുകശ്മീർ പൊലീസും സേനാംഗങ്ങളും സി ആർ പി എഫും ചേർന്ന് സംയുക്ത തെരച്ചിൽ നടത്തി

സേനയുടെ പ്രത്യാക്രമണ ത്തിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത്

സെമി ഫൈനൽ വെള്ളിയാഴ്ചയും ഫൈനൽ മത്സരം ഞായറാഴ്ച യുമാണ് കൊച്ചി ബ്രഹ്മപുരം മാലിന്യപ്സാന്റിൽ പുലർച്ചെ വീണ്ടും തീപിടുത്തമുണ്ടായി

അഗ്നിസുരക്ഷാ സേന തീയണക്കുന്നതിന് ശ്രമം തുടരുകയാണ്

പുതിയ മാലിന്യപ്ലാന്റ് വരുന്നത് അട്ടിമറിക്കാൻ ആരെങ്കിലും മനഃപൂർവൃം തീവെച്ചതാണോ എന്ന് സംശയിക്കുന്നതായി അവർ പറഞ്ഞു പ്രശ്നത്തിൽ പൊലീസിന് പരാതി നല്കും പ്ലാന്റിൽ കൂടുതൽ സി സി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും മേയർ അറിയിച്ചു

അതേസമയം തീപിടിത്തതിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളുണ്ടാ യെന്നാണ് പ്രാഥമിക നിഗമനം അഗ്നിസുരക്ഷാസേനാ യൂണിറ്റുകൾ തീ നിയന്ത്രണ വിധേയമാക്കി

വീട്ടിൽ തുടർച്ചയായി സംഭവിച്ച മരണങ്ങളിൽ ജന ങ്ങൾ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് പൊലീസ് നടപടി

ആലപ്പുഴ നൂറനാട് സ്വദേശി ഡോക്ടർ ബിബിൻ ആണ് മരിച്ചത് ഇന്നലെ രാത്രി പതിനൊന്നോടെയാണ് അപകടം

കാമുകനൊപ്പം ജീവിക്കുന്നതിനാണ് കു ഞ്ഞിനെ കൊന്നതെന്ന് ശരണ്യ പൊലീസിന് മൊഴി നൽകി

ജനവാ സമില്ലാത്ത സുഹലി ദ്വീപിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് കയറ്റി അയക്കാൻ തയ്യാറാക്കി സൂക്ഷിച്ചിരുന്ന കടൽവെള്ളരിക്ക് ഏകദേശം നാല് കോടി രൂപയിലധികം വില വരുമെന്നാണ് കണക്കാക്കുന്നത്

കുട്ടികൾ വായിക്കുന്ന പുസ്തകങ്ങളുടെ വായനാകുറിപ്പ് വർഷത്തി ലൊരിക്കൽ മാസികാ രൂപത്തിൽ പുറത്തിറക്കാൻ ഗ്രന്ഥശാ ലകൾ തയ്യാറാകണം ഇത് കുട്ടികൾക്ക് പ്രചോദനമാകുമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് ഈന്താട് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ഗ്രന്ഥാലയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യവെ പറഞ്ഞു മന്ത്രി എ

ശശീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു